ക്രോസ് ഓവർ മത്സരങ്ങൾ ഇന്ന് നടക്കും

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ പൂർണമായും വീഡിയോയിൽ പകർത്തുന്നുണ്ട് ആദ്യറൌണ്ട് എണ്ണിത്തീർത്ത് ഫലം പ്രദർശിപ്പിച്ചശേഷം മാത്രമേ രണ്ടാം റൌണ്ട് ആരംഭിക്കാവു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആക്മശവാണി

മിസോറാമിൽ ഭരണകക്ഷിയായ കോൺഗ്രസ്സിനെ പിന്തള്ളി മിസോ നാഷണൽ ഫ്രണ്ട് മുന്നിട്ട് നിൽക്കുന്നു തെലങ്കാനയിൽ ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്ര സമിതി അധികാരത്തിൽ എത്തുമെന്നാണ് സൂചന മധ്യപ്രദേശിൽ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്

ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സ് അധികാരത്തിൽ എത്തുമെന്നാണ് നിലവിലെ സുചന

എന്നാൽ മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അജിത് ജ്യോഗി നേതൃത്വം നൽകുന്ന ജനതാ കോൺഗ്രസ്സ് ഛത്തീസ്ഗഡിന് പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ടി ആർ എസ് തെലങ്കാനയിൽ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് ഒടുവിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്

വോട്ടെണ്ണലിന്റെ പൂർണവിവരങ്ങൾ തുടർച്ചയായി വെബ്സൈറ്റിലൂടെ അറിയാനാവും

വോട്ടെണ്ണൽ നാളെ നടക്കും

അടുത്ത പൊതു തിരുടിഞ്ഞടുപ്പിനു മുമ്പുള്ള പാർലമെന്റിന്റെ സമ്പൂർണ സമ്മേളന്മൂർണ് ഇന്ന് ആരംഭിച്ചത് മുൻപ്രധാനമന്ത്രി അടൽബിഹാരി വാജ്പ്യ് മുൻ സ്പീക്കർ സോംനാഥ് ചാറ്റർജി മുൻ പാർലമെന്ററി കാരൃ മന്ത്രി അനന്ത്കുമാർ മറ്റ് സഭാംഗങ്ങൾ മുൻ അംഗങ്ങൾ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേയ്ക്ക് പിരിഞ്ഞു

എല്ലാ പ്രശ്നങ്ങളും പാർലമെന്റിന്റെ ഇരു സ്ഭക്ളിലും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് സമ്മേളനത്തിന്റെ പറഞ്ഞു

സഹകരണം അദ്ദേഹം എല്ലാവരുടേയും പങ്കാളിത്തം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ചർച്ച ചെയ്യാനാകുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു

രാഷ്ട്രീയ ലോക് സമത പാർട്ടിയുടെ അധൃക്ഷനായ ഉപേന്ദ്ര കുശ്വാഹ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൽ നിന്ന് പിൻമാറുന്നു എന്ന് കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജിക്കത്ത് അയച്ചിരുന്നു

നാല് ദിവസത്തെ സന്ദർശ്ഗ്രഹത്തിനായി രാഷ്ട്രപതി ഇന്നലെ മ്യാൻമറിലെത്തി

സ്റ്റേറ്റ് കൌൺസിലർ ആങ് സാങ് സ്യൂയിയുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും

പേര് വിവരങ്ങൾ ചെറിയ രീതിയിൽ പോലും വെളിപ്പെടുത്തുന്ന യാതൊരു നടപടികളും സ്വീകരിക്കരുതെന്ന് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് കോടതി കർശന നിർദ്ദേശം നൽകി പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ളത് ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡന കേസുകളുടെ പ്രഥമ വിവര റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തരുതെന്നും പൊലീസിനോട് കോടതി ആവശ്യപ്പെട്ടു ഇരയാകുന്നവരെ അസ്പർശ്യരായി കാണുന്നത് ദൌർഭാഗ്യകരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി

സഭ ആരംഭിച്ച ഉടൻ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രി്തിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധം നടത്തി ശബരിമലയിലെ നിരോധ്യനാട്ട്ഞ് പിൻലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രത്മിഷേധ് തുടർന്ന് ചോദ്യോത്തരവേള വെട്ടിക്കുറച്ച് മറ്റ് നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു